ജലവൈദ്യുത പദ്ധതികളിലെ സഹകരണത്തിനപ്പുറത്തേക്ക് ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തും

ഇന്ന് സമഗ്ര ശുചീകരണ യജ്ഞം

പ്രധാന മന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും വിവിധ കരാറുകളിൽ ഒപ്പിട്ടു

ഭൂട്ടാൻ രാജാവ് ഭൂട്ടാൻ പ്രധാനമന്ത്രി ഡോ

പ്രകൃതിദത്തമായി തന്നെ ഇന്ത്യയുടെ അയൽരാജ്യമായ ഭൂട്ടാനുമായുള്ള ബന്ധം കൂടുതൽ ദൃഡമാക്കും ഇന്ത്യയുടെ സഹകരണത്തോടെ നിർമ്മിച്ച മങ്ക്ദേച്ചു ജലവൈദ്യുത പദ്ധതി ശ്രീ മോദിയും ഡോ

ഭൂട്ടാനിൽ റൂപേ കാർഡുകളുടെ ഉദ്ഘാടനവും ശ്രീ മോദി നിർവഹിച്ചു പത്ത് കരാറുകളിലാണ് സന്ദർശനത്തിന്റെ ഭാഗമായി ഒപ്പു വച്ചത്

വാർത്താ വിനിമയം പ്രക്ഷേപണം ദുരന്ത നിവാരണം തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ ഗവേഷണത്തിന് സാറ്റലൈറ്റ് കേന്ദ്രം ഗുണമാകും ന്യൂസ് ഡെസ്ക് ആകാശവാണി

എല്ലാ മേഖലകളിലും വൈകാതെ ടെലിഫോൺ പ്രവർത്തനം പുനരാരംഭിക്കുമെന്ന് ഗവൺമെന്റ് വക്താവ് രോഹിത് കൻസാൽ അറിയിച്ചു

തിനാവശ്യമായ പ്രാഥമിക നടപടികൾ സ്വീകരിച്ചു

ജി പി ദിൽബാഗ് സിങ്ങ് ഇന്നലെ പുൽവാമ അനന്ത് നാഗ് ജില്ലകളിൽ സന്ദർശനം നടത്തി ഇന്ന് കൂടുതൽ മേഖലകളിൽ നിയന്ത്രണങ്ങൾ നീക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു ഹജ്ജ് തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചെത്തുന്നവർക്കായി സജ്ജീകരണം ഒരുക്കിയതായി ശ്രീനഗർ ഡിവിഷണൽ കമ്മീഷണർ ബസീർ ഖാൻ അറിയിച്ചു

വെങ്കയ്യ നായിഡു പറഞ്ഞു ജനങ്ങൾക്ക് കൂടുതൽ ഗുണങ്ങൾ ലഭിക്കും ബാൾട്ടിക് രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്നലെ ലിത്വാനിയൻ പ്രസിഡന്റ് ഗിറ്റനസ് നൌസേദയുമായി സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി ലിത്വാനിയൻ തലസ്ഥാനമായ വിൽന്യൂസിലായിരുന്നു കൂടിക്കാഴ്ച പ്രാദേശികമായ വേർതിരിവ് ഇല്ലാതാക്കുവാനും കാര്യക്ഷമമായ ഭരണം ഉറപ്പാക്കുവാനുമാണ് കശ്മീരിലെ നടപടികളെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യയും ലിത്വാനിയയും തമ്മിൽ രണ്ടു കരാറുകളും ഒപ്പിട്ടു ലാത്വിയ എസ്തോണിയ എന്നീ രാജ്യങ്ങളിലും ഉപരാഷ്ട്രപതി സന്ദർശനം നടത്തും

ഇതേ പരാതിയിൽ മുൻ എം

സുനിൽ പാണ്ഡെ ഉൾപ്പെടെ മൂന്ന് പേരെ തെളിവുകൾ ഇല്ലാത്തതിന്റെ പേരിൽ അറാ കോടതി കുറ്റവിമുക്തരാക്കിയിരുന്നു അഡീഷണൽ ജില്ലാ ജഡ്ജിയും സെഷൻ ജഡ്ജിയുമായ ത്രിഭുവൻ യാദവാണ് ലംഭുശർമ്മ ചന്ദ് മിയാൻ നയീം മിയാൻ എന്നിവരടങ്ങുന്ന എട്ടുപേരെ കുറ്റക്കാരെന്ന് വിധിച്ചത് കോടതി വിധിയോടനുബന്ധിച്ചുള്ള വാദപ്രതിവാദം മറ്റന്നാൾ നടക്കും

ജെ പി നിയമസഭാ കക്ഷിയോഗവും അന്നു നടക്കുമെന്ന് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു കർണാടക മുഖ്യമന്ത്രിയായി നാലാം തവണ ശ്രീ

അഗ്നിശമനാ വിഭാഗം പൂർണ്ണമായും തീ അണച്ചു കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോ

തീപിടുത്തത്തെ കുറിച്ച് പ്ലിക്ട്മായ അന്വേഷണം നടത്താൻ ഡോ

രോഗികളുടെയും മറ്റുള്ളവരുടെയും സുരക്ഷ ഉറ പ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനും കേന്ദ്രമന്ത്രി നിർദ്ദേശം നൽകി

ജി ഇന്ധനം നിറയ്ക്കൽ കേന്ദ്രം മുഖ്യമന്ത്രി സർബാനന്ദ സോണോവാൾ ദിബ്രുഗഡിൽ ഉദ്ഘാടനം ചെയ്തു ശുദ്ധവും പരിസ്ഥിതി സൌഹൃദമായ ഇന്ധനത്തിന്റെ വിതരണത്തിനായി എല്ലാ ജില്ലകളിലും സി

വാഹനങ്ങളിൽ നിന്നുള്ള പുക ആരോഗ്യത്തിന് ഹാനികരമാവുന്ന സാഹചര്യത്തിൽ പ്രകൃതി വാതകം പ്രോത്സാഹിപ്പിക്കും വാഹന ഉടമകൾക്കും ഡ്രൈവർമാർക്കും ബോധവത്കരണം നൽകുമെന്നും മുഖ്യമന്ത്രി ശ്രീ സോണോവാൾ അറിയിച്ചു

ഷിംല സോളൻ മാണ്ടി കാംഗ്ര ജില്ലകളിൽ ജാഗ്രത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ബിയാസ് ഉൾപ്പെടെ പ്രമുഖ നദികളെല്ലാം അപകടകരമാം വിധം കരകവിഞ്ഞു ഒഴുകുകയാണ്

വിദ്യാഭ്യാസത്തിലും അധ്യാ പക സജ്ജീകരണങ്ങളിലും പരമ്പരാഗതമായി രാജ്യത്തിന്റെ സ്ഥാനം നേതൃനിരയിൽ തന്നെയാണ് അദ്ദേഹം ഉദ്ഘാടന വേളയിൽ അഭിപ്രായ പ്പെട്ടു ആയിരക്കണക്കിനു വർഷങ്ങളായി ഭാരതീയ ഗുരുക്കന്മാരെ ലോക ത്തിന്റെ അധ്യാപകർ അല്ലെങ്കിൽ വിശ്വഗുരുക്കളായാണ് കരുതി വരുന്ന തെന്നും അദ്ദേഹം പറഞ്ഞു

കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം മുന്നൊ രുക്കം കുറിക്കുന്ന ഈ പദ്ധതി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പദ്ധ തിയായിരിക്കുമെന്ന് സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വിഭാഗം സെക്രട്ടറി റിനാ റെ പറഞ്ഞു

ജില്ലാ കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ അമ്പതിനായിരത്തിലധികം പ്രവർത്തകരും ശുചീകരണത്തിനായി രംഗത്തിറങ്ങും ഒരോ ഗ്രാമപഞ്ചായത്തിലും വാർഡുതലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ശുചീകരണം

ദുരിതാശ്ചാസ ക്യാമ്പുകളുടെ നല്ല രീതിയിലുള്ള തുടർ പ്രവർത്തനത്തിന് വകുപ്പുകളുടെയും ജനങ്ങളുടെയും കൂട്ടായ്മ ഉണ്ടാകണമെന്ന് അദ്ദേഹം പറഞ്ഞു വയനാട് ജില്ലയിലെ പ്രളയ ദുരന്തം സംബന്ധിച്ച പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്ത് കളക്ട്രേറ്റിൽ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

പുരുഷ വിഭാഗത്തിൽ ഇന്ത്യ മലേഷ്യയെ ഏകപക്ഷീയമായ ആറു ഗോളുകൾക്കാണ് തോൽപിച്ചത്

കസാഖ്സ്ഥാനിൽ നടന്ന മത്സരത്തിൽ തായ്പേയ് ടീമിനെയാണ് ഇന്ത്യ തോൽപ്പിച്ചത്

മാനസ് ധാമേ അർണവ് പപ്രകാർ പ്രണവ് റെതിൻ എന്നിവരടങ്ങുന്നതാണ് ഇന്ത്യൻ ടീം

രാജ് ഭവനിൽ സജ്ജീകരിച്ച മന്ദിരം രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും എത്തുമ്പോൾ താമസിക്കുന്നതിനാണ് ഉപയോഗിക്കുക

ഗവർണർ സി

അന്താരാഷ്ട്ര സൌര സഖ്യമട്ട് ക്ട്ട് ഈ ദിശയിലുള്ള നിരവധി ചുവടുവെപ്പുകളുമായി കേന്ദ്രു ഗവൺമെന്റ് മുന്നോട്ടു പോകുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു

നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ

അടൂർ പ്രകാശ് എം